കേസുകൾ റിപ്പോർട്ട് ചെയ്തു

വന്ദേഭാരത് ദൌതൃത്തിന്റെ രണ്ടാംഘട്ടത്തിന് നാളെ തുടക്കം

ഡൽഹിയിൽ കുടുങ്ങിയ മലയാളികളുമായുള്ള പ്രത്യേക ട്രെയിൻ ഇന്ന് പൂലർച്ചെ തിരുവനന്തപുരത്ത് എത്തി

ട്രെയിൻ യാത്രക്കാർക്കായി പ്രത്യേക ബസ് സർവ്വീസ് ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം നിർദ്ദേശിച്ചു

കുടിയേറ്റ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ ചെറുകിട വ്യാപാരികൾ സ്വയംതൊഴിലുകാർ ചെറുകിട കർഷകർ എന്നിവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി എട്ട് കോടി കുടിയേറ്റ തൊഴിലാളികൾക്ക് അടുത്ത രണ്ട് മാസത്തേക്ക് സൌജന്യ റേഷൻ അനുവദിക്കും

താങ്ങാവുന്ന നിരക്കിലുള്ള വാടക വീടുകൾ കുടിയേറ്റ തൊഴിലാളികൾക്കും നഗര മേഖലൂയിലെ ദരിദ്രർക്കും ഉറപ്പു വരുത്തും

കിസാൻ ക്രെഡിറ്റ് കാർഡുള്ള രണ്ടര കോടി ക്ർഷകർക്ക് രണ്ട് ലക്ഷം കോടി രൂപയുടെ പ്രത്യേക വായ്പാ പദ്ധതി ന്ടപ്പാക്കും

പാക്കേജിന്റെ ഭാഗമായ നിരവധി പദ്ധതികൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു കൊറോണ വൈറസ് പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാനും സാമ്പത്തിക രംഗത്തിന് ഉത്തേജനം നൽകാനുമുള്ളതാണ് ഈ പദ്ധതികൾ

ഭക്ഷ്യസുരക്ഷയും കർഷകർക്കും വഴിയോരക്കച്ചവടക്കാർക്കും വായ്പാലഭ്യതയും ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ പുരോഗമനപരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അഭ്യാർത്ഥികളുടെ താമസം ഭക്ഷണം തുടങ്ങിയ അവശ്യങ്ങൾക്ക് ഫ്രിഫ്ടാന്യം നൽകിക്കൊണ്ടുള്ള ഈ പാക്കേജ് ഈ വിഭാഗങ്ങളുടെ ആത്മുവീശ്ചാസം വർദ്ധിപ്പിക്കാൻ സഹായകമാകുമെന്ന് അദ്ദേഹം ട്ട്വീറ്റ് ചെയ്തു

കൊറോണ വൈറസ് ആന്റിബോഡി പരിശോധനയ്ക്കായി പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച എലിസ പരിശോധന കിറ്റുകൾ ഐ സി എം ആറും ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് വികസിപ്പിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തത്

എസ്

കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുന്ന കപ്പലിൽ കേരളത്തിൽ നിന്നുള്ളവരും ലക്ഷദ്വീപ് സ്വദേശികളുമാവും ഉണ്ടാവുക

യാത്രക്കാരിൽ ഒരാൾക്ക് കോവിഡ് ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇയാളെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളജ് ആശുപത്രിയിലേക്ക് മാറ്റി ലോക്ക് ഡൌണിനിടയിൽ കേരളത്തിലേക്ക് യാത്രക്കാരുമായി എത്തുന്ന ആദ്യ ട്രെയിനാണിത്

ബാഗേജുകൾ അണുവിമുക്തമാക്കിയശേഷം യാത്രക്കാരെ പ്രത്യേകം സജ്ജമാക്കിയ കെ എസ് ആർ ടി

എന്നാൽ കോഴിക്കോട് എത്തിയ യാത്രക്കാരിൽ ആറുപേരെ രോഗലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളെജ് ആശുപത്രിയിലും കോവിഡ് കെയർ സെന്ററുകളിലുമാക്കി

എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമാണ് സംസ്ഥാനത്ത് ട്രെയിൻ നിർത്തുക റിസർവേഷനുള്ളതും രോഗലക്ഷണങ്ങളില്ലാത്തതുമായ യാത്രക്കാരെ മാത്രമേ യാത്ര ചെയ്യാൻ അനുമതി നൽകൂ

ലോക്ക്ഡ്ട്ട്ണിനെ തുടർന്ന് പൊതു ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തീയ്ക്കുന്നത് പരിഗണിച്ചാണ് നിർദ്ദേശം

യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും മാസ്കുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്

ബി എസ്

ഓൺലൈനായോ നേരിട്ടോ പരീക്ഷ എഴുതാം

കോവിഡ് സാഹചര്യം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ പുസ്തകങ്ങൾ ഒപ്പം കരുതാവുന്ന തരം പരീക്ഷാരീതി അവലംബിക്കുമെന്നും സർവകലാശാല അറിയിച്ചു തീയതികൾ ഈ മാസം അവസാനത്തോടെ അറിയിക്കും

മേക്ക് ഇൻ ഇന്തൃയുടെ ഭാഗമായി തദ്ദേശീയമായി നിർമ്മിച്ച ഈ കപ്പലുകൾ ഗോവയിലാണ് ഉള്ളത് ഇതാദ്യമായാണ് തീരസംരക്ഷണസേനാ കപ്പലുകൾ വീഡിയ്യോ കോൺഫറൻസിങ്ങിലൂടെ കമ്മീഷൻ ചെയ്യുന്നത്

കെ സുപ്രീംകോടതിയെ സമീപിക്കാൻ അനുവദിക്കണ്ണ്ട്മെന്ന വിജയ് മല്യയുടെ ആവശ്യം ലണ്ടൻ ഹൈക്കോടതി നിരസിച്ചു

തന്നെ കൈമാറരുതെന്ന് ആവശ്യപ്പെട്ടുള്ള മല്യയുടെ ഹർജി കഴിഞ്ഞ മാസം ലണ്ടൻ ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്ന് സുപ്രീംകോടതിയെ സമീപിക്കാൻ വിജയ് മല്യ സമർപ്പിച്ച അപേക്ഷയാണ് ഇപ്പോൾ ലണ്ടൻ ഹൈക്കോടതി തള്ളിയത് ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് പതിനൊന്നായിരം കോടി രൂപ വെട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് മല്യ

എൺപതിനായിരം അമേരിക്കക്കാർ ഉൾപ്പെടെ ലോകത്താകമാനം മൂന്ന് ലക്ഷം പേരുടെ മരണത്തിനിടയാക്കിയ കൊറോണ വൈറസ് വ്യാപനത്തെ ബെയ്ജിങ്ങ് കൈകാര്യം ചെയ്ത രീതിയിൽ ട്രംപ് നിരാശ പ്രകടിപ്പിച്ചു കൊറോണ വിഷയത്തിൽ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ വഷളായതായും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു നിലവിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ മടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഒരു വർഷ്ണകൂടി കാലാവധി ഉണ്ടെന്നിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനം

സ്വർണവിലയിൽ റെക്കോർഡ് വർദ്ധന